എൽ ഫുട്ബോളിൽ ബംഗളുരു ചെന്നൈയിൻ മത്സരം ഗോൾരഹിത സമലനിലയിൽ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് മൂന്നാം ഘട്ടത്തിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കോവിഡ് വാക്സിൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ വാക്സിനേഷൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത ആഴ്ചയോടുകൂടി മറ്റ് മുൻനിര പ്രവർത്തകർക്ക് വാക്സിൻ നൽകുന്നത് ആരംഭിക്കാൻ കഴിയുമെന്നും ഇത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതുകഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് വാക്സിനേഷൻ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് കുറഞ്ഞുവരുന്നില്ല എന്നത് നാം ഈരംഗത്ത് കൂടുതൽ ഗൌരവത്തോടെ ഇടപെടണം എന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ദേദ സംസ്ഥാനത്തെ കൊവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്രസംഘവുമായി മന്ത്രി കെ

ശൈലജ കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തി കേന്ദ്രസംഘത്തിന്റെ നിർദേശപ്രകാരം സംസ്ഥാനത്ത് കൊവിഡ് പരിശോധന വർധിപ്പിക്കുമെന്നും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി ആകാശവാണിയോട് പറഞ്ഞു

ദേദ സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഗണ്യമായി കുറഞ്ഞു

ദേദ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ശക്തമായി നേരിടണമെന്ന് പൊലീസിന് കർശന നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു ഇത്തരം മാർഗ്ഗങ്ങളിലൂടെ സ്ത്രീകളെ അവഹേളിക്കുന്നത് കണ്ടെത്താൻ പൊലീസിലെ ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീസുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ നിർഭയം എന്ന മൊബൈൽ ആപ്പിന്റെ പ്രകാശനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ദേദ ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് കുടുംബ വരുമാനം എന്നത് മാറ്റി വ്യക്തിഗത വരുമാനം അടിസ്ഥാന മാനദണ്ഡമാക്കുന്നത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

തൊഴിൽ സംവരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗൌരവമായി കണ്ട് കുറവുകൾ പരിഹരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി

എൽ ഫുട്ബോളിൽ പനാജിയിൽ ഇന്നലെ ബംഗളുരു എഫ് സി ചെന്നൈയിൻ എഫ്

കെ മോഹൻബഗാനെ നേരിടും

തിരുവനന്തപുരം ദർബാർ ഹാളിൽ നടന്ന ജി വി രാജ പുരസ്കാര വിതരണച്ചടങ്ങ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി ഇ പി ജയരാജൻ അവാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാനത്ത് യോഗ പരിശീലനം വ്യാപിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് കായിക വകുപ്പ് ബൃഹദ് പദ്ധതിക്ക് രൂപം നൽകുകയാണെന്ന് മന്ത്രി പറഞ്ഞു ദേദ കോഴിക്കോട്ട് സംസ്ഥാന സബ്ജൂനിയർ ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വനിതാ വിഭാഗത്തിൽ ആതിഥേയരായ കോഴിക്കോടിനെ തോൽപ്പിച്ച് തൃശൂർ ജേതാക്കളായി സബ്ജൂനിയർ വനിതാ വിഭാഗത്തിൽ കോഴിക്കോടാണ് ചാമ്പ്യൻമാർ ദേദ കെ എസ് ആർ ടി സി യുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി സിഫ്റ്റ് കമ്പനി രൂപീകരിക്കുന്നതിൽ തൊഴിലാളി യൂണിയനുകൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പൂർണമായും ഗവൺമെന്റ് ഉടമസ്ഥതയിൽ സൊസൈറ്റിയാക്കാമെന്ന് മന്ത്രി ഡോ

ജീവനക്കാർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും പിരിച്ചുവിട്ടവർക്ക് പുനപ്രവേശനവും നൽകുകയെന്ന നയത്തിന്റെ ഭാഗമായാണ് പുനരുദ്ധാരണ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി അറിയിച്ചു മന്ത്രി എ

ശശീന്ദ്രൻ കെഎസ്ആർടിസി സിഎംഡി ബിജുപ്രഭാകർ എന്നിവർക്കൊപ്പം യൂണിയൻ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ദേദ കഴിഞ്ഞ അഞ്ച് വർഷം സംസ്ഥാനത്ത് പച്ചക്കറി ഉത്പാദനത്തിൽ വലിയ വർധനയുണ്ടായതായി മന്ത്രി വി

ദ്ദേ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ രൂപീകരിച്ച വാട്ടർ യൂസേഴ്സ് അസോസിയേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം മന്ത്രി കെ

സംസ്ഥാനത്ത് ആദ്യമായാണ് ജലസേചന പദ്ധതികൾക്ക് കീഴിലെ ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനായി കർഷക പങ്കാളിത്തതോടെ വാട്ടർ യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് ദേദ വാമനപുരം സമഗ്ര ശുദ്ധജല വിതരണപദ്ധതിയുടെ രണ്ടാംഘട്ട നിർമാണോദ്ഘാടനം മന്ത്രി കെ

കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു

എം മുൻ എം പിമാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും ഗവൺമെന്റ് സർവീസിൽ അനധികൃത നിയമനം നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത്തരം നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തി സുപ്രീംകോടതി വിധിയെയും നിയമ വ്യവസ്ഥയെയും വെല്ലുവിളിക്കുകയാണ് പിണറായി ഗവൺമെന്റെന്നും ചെന്നിത്തല ആരോപിച്ചു ഐശ്വര്യ കേരളയാത്രക്ക് മലപ്പുറം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബിശ്വാസ് മേത്തയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ജലിവിഭവ വകുപ്പിന്റെ പദ്ധതികളിൽ ചില വിദേശ കൺസൾട്ടൻസി കമ്പനികളെ നിയോഗിക്കുന്നതിന് അദ്ദേഹം നടത്തിയ ക്രമവിരുദ്ധവും ദൂരൂഹവുമായ നീക്കത്തിനെതിരെ താൻ തന്നെ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറഞ്ഞു അഴിമതിയാരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഒരാളെ മുഖ്യവിവരാവാകാശ കമ്മീഷണർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ശരിയായില്ലന്ന് അദ്ദേഹം കത്തിൽ അറിയിച്ചു